രാമക്ഷേത്രം നിർമ്മിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് ബി ജെ പി

സിന് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി സംസ്കാരം നാളെ

വനിതാ ടീമിന് ജയം

രാമക്ഷേത്ര നിർമാണത്തിനുള്ള പ്രവർത്തനൃങ്ങൾക്കായി രൂപീകരിക്കപ്പെട്ട ട്രസ്റ്റ് തർക്ക മന്ദിരത്തിനു ചുറ്റൂമുള്ള ് ഭൂമി തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടു ന്ന് ഏർജീയിൽ സൂചിപ്പിക്കുന്നു

കേന്ദ്രമന്ത്രിയും മുതിർന്ന പാർട്ടി നേതാവുമായ പ്രകാശ് ജാവദേക്കർ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാരൃം പറഞ്ഞത്

പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് നീങ്ങുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികൾ എന്നും മറ്റുള്ള്വർക്ക് പ്രചോദനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ചെനാബ് നദിതീരത്ത് ഇന്നലെ വൈകുന്നേരത്തോടെ സംഘം പദ്ധതി വിലയിരുത്താൻ എത്തി

മറ്റെന്നാളോടെ സന്ദർശനം പൂർത്തിയാക്കി സംഘം ന്യൂഡൽഹിയിലെത്തും

സംസ്കാരം നാളെ നടക്കും മുതിർന്ന ജനതാദൾ നേതാവായിരുന്ന അദ്ദേഹം പിന്നീട് സമതാ പാർട്ടി എന്ന പേരിൽ സ്വന്തം പാർട്ടി രൂപീകരിച്ചു

നാളെ നടക്കേ മന്ത്രിസഭാ സമ്മേളനം ഉൾപ്പെടെയുള്ള എല്ലാ ഔദ്യോഗിക പരിപാടികളും മാറ്റി വച്ചു

നിരവധി വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും വിശദാംശങ്ങളുമായി വീണാ മുകുന്ദൻ വോയിസ് സൂറത്ത് വിമാനത്താവളത്തിലെ ടെർമിനൽ കെട്ടിട വിപുലീകരണത്തിനുള്ള ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും

വികസനത്തിനായി അടിസ്ഥാന സൌക രൃം വിപുലീകരിക്കുക എന്നതിന്റെ ഭാഗമായാണ് വിവിധ മേഖലക ളിൽ പല സംരംഭങ്ങൾക്കും തുടക്കമിട്ടിരിക്കുന്നത് വ്യോമയാന മേ ഖല അതിൽ ഒന്നാണ് ക ്ലയിൽ നിന്നും മുംബെയിലേയ്ക്കും പോർബന്ദറിൽ നിന്നും അഹമ്മദാബാദിലേയ്ക്കും മുംബെയിലേയ് ക്കും ഉഡാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിമാന സർവീസുകൾ ഉ ് രാജ്ക്കോട്ടിലെ ഹിരാസാറിലുള്ള ഗ്ലീൻഫീൽഡ് വിമാനത്താവ ളത്തിന്റെ വികസനം അഹമ്മദാബാദ് പ്രഡോദര വിമാനത്താവളങ്ങ ളിലെ പുതിയ എയർ ട്രാഫിക് ക്ടൺട്രോൾ ടവറുകളുടെയും ടെക് നിക്കൽ ബ്ലോക്കുകളുടെയും ്നിർമ്മാണം തുടങ്ങിയവ ഇതിൽ ഉൾ പ്പെടും നവ്സരി ജില്ലയിലുള്ള് ദണ്ഡിയിലാണ് പ്രധാനമന്ത്രിയുടെ അടുത്ത ദിവസത്തെ പ്പതിപാടി

ഈ മാസം ഇതു ര ാം തവണയാണ് പ്രധാനമന്ത്രി ഗുജറാത്തിൽ എത്തുന്നത്

കൂടുതൽ വനിതകൾ നേതൃത്വത്തിലേക്ക് വരണമെന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നതെന്നും മാറ്റത്തിനു വേ ിയാണ് തന്റെ പാർട്ടി നിലകൊള്ളുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കൊച്ചി മറൈൻ ഡ്രൈവിൽ നടക്കുന്ന കോൺഗ്രസ് നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശ്രീ രാഹുൽ

ഹിമാചൽപ്രദേശ് ഉത്തർപ്രദേശ് ആന്ധ്രാപ്രദേശ് കർണ്ണാടക മഹാരാഷ്ട്ര ഗുജറാത്ത് പുതുച്ചേരി എന്നീവയ്ക്കാണ് ഏഴായിരം കോടി രൂപയുടെ അധിക ഫ ് അനുവദിച്ചത്

യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പിൻവാങ്ങുന്നതിനുള്ള പ്രധാനമന്ത്രി തെരേസാ മേയുടെ തീരുമാനത്തെ ര ാഴ്ച മുമ്പ് പാർലമെന്റ് വോട്ടിനിട്ട് തള്ളിയ ശേഷം കൊ ു വന്ന നിർദ്ദേശങ്ങളിലെ അഭിപ്രായ വോട്ടെടുപ്പാണ് ഇന്ന് നടക്കുന്നത്